രാജ്യത്തെ വ്യാവസായിക വികസനത്തിനുമുള്ള ദിശാസൂചികയാണ് ഇത്തവണത്തെ കേന്ദ്രബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വൃവസായികൾക്കുള്ള സംശയനിവാരണത്തിന് ധനമന്ത്രി നിർമ്മലാസീതാരാമൻ ജി

ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നല്കി

അഞ്ച് ടൺ മയക്കുമരുന്ന് പൊലീസ് പിടികൂടി

വീഴരാണസിയിലെ ദീൻ ദയാൽ ഹസ്തകല സങ്കുലിൽ സ്കാർസ്കാരിക കലാ കരകൌശല മേളയിൽ സംസാരിക്കുക്യായിരുന്നു പ്രധാനമന്ത്രി

വാരാണസിയിൽ ജൻഗംബദി മഠത്തിൽ ശ്രീ ജഗദ്ഗുരു വിശ്വാരാധൃ ഗുരുകുലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ജനങ്ങളുടെ കഴിവാണ് രാജ്യം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വത്വം സംബന്ധിച്ച് ഭാവി തലമുറയെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിലെത്തിയ ശ്രീ

ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർണാടകമുഖ്യമന്ത്രി ബി

പിന്നീട് പദവ് മേഖലയിലെത്തിയ പ്രധാനമന്ത്രി പണ്ഡിറ്റ് മീനദയാൽ സ്മാരക കേന്ദ്രം രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ഡൽഹി രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്

കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും ശ്രീ കെജ്രിവാൾ ഇത്തവണയും നിലനിർത്തിയിട്ടുണ്ട് മനീഷ് സിസോദിയ സത്യേന്ദർ ജെയ്ൻ ഗോപൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് ഇമ്രാൻ ഹുസൈൻ രാജേന്ദ്ര ഗൌതം എന്നീ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്

പ്രതിനിധികളുമായി ഹൈദ്രാബാദിൽ ബജറ്റിനെ കുറിച്ച് സംസാരിക്കവെയാണ് ധനമന്ത്രി ഇത് പറഞ്ഞത് ബജറ്റ് തയ്യാറാക്കിയപ്പോൾ എല്ലാ മേഖലകളിലായുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും താത്പര്യം കണക്കിലെടുത്തിരുന്നുവെന്നും മന്ത്രി വൃക്തമാക്കി

ബജറ്റിനെകുറിച്ച് ധനമന്ത്രാലയം ജനങ്ങളോട് നേരിട്ട് വിശദീകരിക്കുന്നത് ആദൃമായാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല പരിപോഷിപ്പിക്കാൻ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് മന്ത്രിപറഞ്ഞു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇനം മെഡിക്കൽ ഉപകരണങ്ങൾ വിദേശത്തുനിന്നും ഇറക്കുമതി ചെയ്താൽ അഞ്ച് ശതമാനം സെസ്ക് ടൂമത്തുമെന്നും മന്ത്രി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

വ്യവസായികളുടെയും വ്യാപാരികളുടെയും സംശയനിവാരണം ജില്ലാതലങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ നടത്തണമെന്ന് മന്ത്രി പറഞ്ഞു ചരക്ക് സേവന നികുതി നടപ്പാക്കി മൂന്നു വർഷം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് ഇനി സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി

പൊലീസുകാരുടെ പ്രധാനമന്ത്രി ത്യാഗത്തെ പ്രകീർത്തിച്ചിട്ടുണ്ടെന്നും അവരുടെ ഓർമ്മയ്ക്കായാണ് ദേശീയ പൊലീസ് സ്മാരകം ഡൽഹിയിൽ സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

കൊൽക്കത്തയിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി തീവ്രവാദത്തിന് മതവുമായി ബന്ധമില്ലെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഐകൃരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ശക്തമായ നടപടികൾ സ്വീകരിക്കണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

നാളെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംബന്ധിക്കും

ന്യൂസ്ഡസ്ക് ആകാശവാണി

സർവ്വകലാശാലയിലെ ഗ്രന്ഥശാലയിൽ പൊലീസുകാർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ഇക്കാര്യം പൊലീസ് വിശദമായി അന്വേഷിക്കുമെന്ന് ഡൽഹി പൊലീസ് സ്പെഷ്യൽ കമ്മീഷണർ പ്രവീർ രഞ്ജൻ മാധ്യമങ്ങളോട് പറഞ്ഞു

വൈറസ് ബാധ പടരുന്നത് തടയാൻ ചൈന സ്വീകരിച്ച നടപടികൾ പ്രചോദിപ്പിച്ചതായി ജർമ്മനിയിലെ മ്യൂണിക് സുരക്ഷാ ഉച്ചുകോടിയിൽ അദ്ദേഹം പറഞ്ഞു

വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ ഈ വിദ്യാർത്ഥിയുടെ തുടർ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് തീരുമാനം

കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിങ്ൻ നിർദ്ദേശങ്ങൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഇവരെറ്റൂ ഐ

പി കേന്ദ്രത്തിൽ നിന്നും മാറ്റുന്നതാണ്

സമുദ്രമലിനീകരണം സംബന്ധിച്ച വിഷയത്തിലും സഹകരിച്ച് പ്രവർത്തിക്കും